നിരോധനം ഉടൻ പിൻവലിക്കണ്ണുമിന്നു് ആവശ്യപ്പെട്ട് നിയമസഭ പ്രമേയം പാസാക്കി

പ്രമേയത്തിന് അനുമതി ന്ത്ൽകിയില്ല നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്

അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ

ഡിജി ലോക്കർ രേഖകൾ ആധികാരിക രേഖയായി അംഗീകരിക്കണമെന്ന് പോലീസ് മേധാവിയുടെ നിർദ്ദേശം

പരാജയപ്പെടുത്തി കർണ്ണാടക ഫൈനലിൽ കടന്നു

കേരളത്തിന്റെ നിർദേശങ്ങൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയമിക്കാമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും സഭ ഒറ്റകെട്ടായി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു മറ്റു കടുവാ സങ്കേതങ്ങളിലൊന്നും കൊണ്ടുവരാത്ത നിയിന്ത്രണം ഇവിടെ മാത്രം കൊണ്ടുവന്നത് തികഞ്ഞ ജനദ്രോഹവും വിവേചനവുമാണ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത്

വാറ്റ് കുടിശ്ശികയുമായി ബ്സ്സ്പ്പെട്ട നോട്ടീസുകളിലെ പിഴവുകളെ തുടർന്ന് ഒരു വ്യാപാരി ആത്മഹ്ത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ അടിയന്തര പ്രമേയ ചർച്ച സ്പീക്കർ നിരാകരിച്ചതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോക്ക് കുടിശ്ശിക നോട്ടീസുകൾക്ക് മേൽ തുടർനടപടികൾ ഉണ്ടാകില്ലെന്ന് വ്യാപാരി സംഘടനകൾക്ക് ഉറപ്പ് നൽകിയതായി ധനകാര്യമന്ത്രി തോമസ് ഐസക് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി

യാന്ത്രികമായാണ് നോട്ടീസ് തയ്യാറാക്കിയതെന്നും ഉദ്യോഗസ്ഥർ നോട്ടീസ് പരിശോധിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു

മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയുമായിരുന്നു

ആലപ്പുഴയിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അദ്ധ്യക്ഷ

തൊഴിലിടങ്ങളിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായി രൂപീകരിച്ചിട്ടുള്ള പരാതി പരിഹാര സെല്ലുകളുടെ പ്രവർത്തനം പലയിടങ്ങളിലും കാര്യക്ഷമമല്ലെന്നും പലപ്പോഴും ഇത്തരം സെല്ലുകളിൽ നിന്നും സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും കമ്മീഷൻ വിലയിരുത്തി ഡിജി ലോക്കർ വാഹനപരിശോധന സമയത്ത് ഹാജരാക്കുന്ന ഡിജി ലോക്കർ രേഖകൾ ആധികാരിക രേഖയായി അംഗീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി ഡിജി ലോക്കർ എം പരിവാഹൻ എന്നിവയെ മോട്ടോർ വാഹന രേഖകൾ ആധികാരികമായി സൂക്ഷിക്കാവുന്ന ആപ്തിക്കേഷനുകളായി അംഗീകരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കിതിനു ശേഷവും സംസ്ഥാനത്ത് പലസ്ഥലങ്ങളിലും അവ വഴി ഹാജരാക്കുന്ന രേഖകൾക്ക് സ്വീകാര്യത കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്

രാജ്യം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്ന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു് ജോലി സമയം സംസ്ഥാനത്ത് മെഡിക്കൽ റെപ്രസന്റേറ്റീവ്മാർ ഉൾപ്പെടെയുള്ള സെയിൽസ് പ്രൊമോഷൻ ജീവനക്കാരുടെ ജോലി സമയം നിജപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചു

മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി യൂണിയനുകൾ ഉൾപ്പെടെയുള്ളവരുടെ വിവിധ നിവേദനങ്ങൾ പരിഗണിച്ചാണ് തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ തീരുമാനം

അതിനാൽ ആരും തന്നെ ജയപരാജയങ്ങൾ ആഘോഷിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി നെടുമ്പാശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി രാജ്യത്തിന്റെ സമാധാനവും സൌഹാർദ്ദവും കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ കേന്ദ്രമന്ത്രി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുത്തവലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

സ്ട്രിങ്ങിൽ നിന്ന് ഹാമർ വേർപെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് വീണാണ് പരിക്ക്

കൂടത്തായി കൊലപാതക കേസ് കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പരയിലെ മഞ്ചാടിയിൽ മാത്യുക്കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി ജോളിയെ കൂടത്തായിയിലും ഓമശ്ശേരിയിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൂടത്തായിലെ പൊന്നാമറ്റം വീട്ടിലൂർ മീഞ്ചാടിയിൽ മാത്യുവിന്റെ വസതിയിലും തെളിവെടുപ്പ് നടത്തി ്രുട്ടർന്ന് ഓമശ്ശേരി ആശുപത്രിയിൽ ജീവനക്കാരോടും വീവരങ്ങൾ ആരാഞ്ഞു

സംഭവത്തിൽ ദുബായിൽ നിന്നെത്തിയ പാലക്കാട് സ്വദേശി പിടിച്ചെടുത്ത തോക്കുകൾ പരിശോധനയ്ക്ക് പിടിയിലായി

സ്വർണവില കുറഞ്ഞു

പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻറെ പത്താം മത്സരം കൂടിയാണിത് ഐപിഎൽ മാതൃകയിൽ സംഘടിപ്പിക്കുന്ന ലീഗിൻറെ ഒമ്പത് മത്സരങ്ങൾ പിന്നിടുമ്പോൾ നടുഭാഗം ചുണ്ടൻ പോയിൻറുകളുമായി ഒന്നാം സ്ഥാനത്താണ്